ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിള്ളു് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്

വാരാണസിയിൽ രണ്ട് സൂപ്രധാന ദേശീയ പാതകളും ഗംഗയിലെ ഉൾനാടൻ ജലഗതാഗത പാത ടെർമിനലും പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഇന്ത്യ പാകിസ്ഥാനെ ഏഴു വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി

കാൻസർ ബാധയെ തുടർന്ന് ലണ്ടനിലും ന്യൂയോർക്കിലും അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനായിരുന്നു

ആർ

എഫ് ബി എസ്

പി സംസ്ഥാന പോലീസ് എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്വസിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെയും ബി എസ് എഫിന്റെയും ഹെലികോപ്ടറുകളും സേവനരംഗത്തുണ്ട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ ശക്തമായ സുരക്ഷയാണ് ക്രമീകരിച്ചിട്ടുള്ളത്

ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ എട്ടു മണിമുതൽ അഞ്ചു മണിവരെയാണ് വോട്ടെടുപ്പ്

ഇതോടൊപ്പം വാരാണസിയിൽ ഗംഗ്ളന്ദ്രിയിലെ ഉൾനാടൻ ജലഗതാഗത മാർഗവും പ്രധാനമന്ത്രി നാളെ രാഷ്ട്രടത്തിന് സമർപ്പിക്കും ലോകബാങ്ക് സഹായത്തോടെ നിർമ്മിക്കുന്നു ജർമാർഗ് വികാസ് പദ്ധതിക്ക് കീഴിൽ ഗംഗാനദിയിൽ നിർമ്മിക്കുന്നു നാ്ലു മൾട്ടി മോഡൽ ടെർമിനലുകളിൽ ആദ്യത്തേതാണിത് ഹാൽദിയ ഗാസിപൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് മൂന്ന് ടെർമിനലുകൾ നിർമ്മിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

തിരുവിതാംകൂറിനെ തുടർന്ന് കൊച്ചിയിലും കോഴിക്കോടും മലബാറിലും ക്ഷേത്രങ്ങൾ സമസ്ത ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിലുണ്ടായിരുന്ന നാന്നൂറിൽപരം ക്ഷേത്രങ്ങളിൽ മാത്രമായിരുന്നു വിളംബര പ്രകാരം പ്രവേശനം നടപ്പാക്കിയത് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് ഭരണകൂടത്തെ നയിച്ച മറ്റു രണ്ടു ഘടകങ്ങ്ളാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ക്ഷേത്രത്തിൽ ചുറ്റുമുള്ള പൊതുവഴിയിൽ അവർണ്ണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആനുവദീക്കാനും തീണ്ടൽ പലകകൾ നീക്കം ചെയ്യാനും വേണ്ടിയായിരുന്നു സത്യാഗ്രീഹം

സുബ്രഹ്മണ്യ അയ്യരെ തിരുവിതാംകൂർ സർക്കാർ അനുവദിച്ചു

കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം ശക്തമായതും എ

ജിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രത്തിന്റെ പ്രചരണാർത്ഥം നടന്ന പര്യടനങ്ങളും അവർണ്ണർക്ക് ക്ഷേത്രപ്രവേശനം എന്ന ആവശ്യത്തെ യാഥാർഥ്യത്തോട് അടുപ്പിക്കുകയായിരുന്നു ജനങ്ങളുടെ ആത്മീയ വിമോചനത്തിന്റെ സ്മൃതിയും ആധുനിക കാലത്തിന്റെ അത്ഭുതവുമെന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

പി അദ്ധ്യക്ഷന്റ് ൽമിതിഷാ മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു്

മിതാലി രാജ് നേടിയ അർദ്ധസെഞ്ചറിയാണ് ഇന്ത്യയ്ക്ക് മികച്ച രീതിയിൽ ജയം നേടാൻ സഹായകമായത്

ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റ് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു ഇന്ത്യയുടെ തുടക്കം മികച്ചതായിരുന്നു

രാജ്യ വിഭജനത്തോടെ താൽക്കാലികമായി സ്ഥാനഭ്രംശം സംഭവിച്ച് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ താമസിപ്പിച്ചവരെ അഭിസംബോധന ചെയ്യാനാണ് മഹാത്മജി സ്റ്റുഡിയോയിൽ എത്തിയത് ആകാശവാണി ന്യൂഡൽഹി പരിസരത്ത് അനുസ്മരണാർത്ഥം ഇന്ന് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്

അഭയാർത്ഥികളെ തിരിച്ചയയ്ക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തീയതിക്ക് നാലു ദിവസം ്ല മുമ്പ് മൃാൻമാർ സാമൂഹൃ ക്ഷേമ മന്ത്രി വിൻ മ്യാറ്റ് ഐയ് യെക്ക്ട്ടിട്ടിൽ പ്രസ്താവിച്ചതാണിത്